സമ്പദ്വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്യും

കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ ആരോപണം നേരിടുന്ന ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഭരണചുമ തലകൾ തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു

പ്രളയദുരന്തം അന്വേഷിക്കാൻ ജൂഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ബുധനാഴ്ച ഹൈക്കോടതി പരിഗണിക്കും നവകേരള നിർമ്മിതിക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ ധനസമാഹ രണയജ്ഞം ഇന്ന് അവസാനിക്കും ്മ് സാഫ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് മാലദ്വീപിനെ നേരിടും രാജ്യത്ത് നടപ്പാക്കിയ സ്വച്ഛ് ഭാരത് പദ്ധതി വൻ വിജയമായി രുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഒമ്പത് കോടി ശുചി മുറികൾ നിർമ്മിക്കാനായെന്നും അദ്ദേഹം അറിയിച്ചു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സ്വപ്നംകണ്ട സ്വച്ഛഭാരതം സാധ്യമാക്കാൻ നടത്തുന്ന ഉദ്യമത്തിന് എല്ലാവരുടെയും പിന്തുണ വേണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു സ്ത്രീകളും യുവാ ക്കളും കേന്ദ്രത്തിന്റെ ഇത്തരം പദ്ധതികൾക്ക് നൽകുന്ന വലിയ പിന്തുണ അഭിനന്ദനാർഹമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സ്വച്ഛത ഹി സേവയ്ക്ക് മാതാ അമൃതാനന്ദമയിയിൽ നിന്നും പ്രധാനമന്ത്രി ആശിർവാദം തേടി സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ലക്ഷദ്വീപിലും ശുചീകരണപരിപാടികൾക്ക് തുടക്കമായി തലസ്ഥാന ദ്വീപായ കവ രത്തിയിൽ അഡൈസർ ടൂ അഡ്മിനിസ്ട്രേറ്റർ വിവേക് പാണ്ഡെ ഐ

സേനാവിഭാഗങ്ങൾ ഉദ്യോഗ സ്ഥർ ജനപ്രതിനിധകൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടു ത്തു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചുചേർത്ത അവലോ കന യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും

ധനമന്ത്രി അരുൺജെയ്റ്റ്ലി റിസർവ് ബാങ്ക് ഗവർണർ ഉർജ്ജിത് പട്ടേൽ നിതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാർ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ബിബേഗ് ഡബ്രോയ് ധനകാര്യസെക്രട്ടറി ഹസ്മുഖ് ആദിയ എന്നിവർ യോഗ ത്തിൽ പങ്കെടുക്കും അവലോകന യോഗത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി ഇന്നലെ ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ചനടത്തി യിരുന്നു കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന ആരോപണം നേരിടുന്ന ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഭരണച്ചുമതലകൾ തൽക്കാ ലത്തേക്ക് ഒഴിഞ്ഞു രൂപതയുടെ ചുമതല ഫാ മാത്യു കോക്കണ്ട ത്തിന് കൈമാറിയതായി ബിഷപ്പ് സർക്കുലറിൽ അറിയിച്ചു ഫാദർ ജോസഫ് തേക്കുംകാട്ടിൽ ഫാ

എല്ലാം ദൈവത്തിന് കൈമാറുകയാണെന്നും തനിക്കും പരാതിക്കാരിക്കുംവേണ്ടി പ്രാർത്ഥിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു രൂപത വിട്ട് കേരളത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ചുമ തല കൈമാറുന്നത് സാധാരണ നടപടി മാത്രമാണെന്നും ബിഷപ്പ് വെളിപ്പെടുത്തി

പീഡന പരാതിയിൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നാവ ശ്യപ്പെട്ട് കന്യാസ്ത്രീകളടക്കം നടത്തുന്ന സമരം ഇന്ന് എട്ടാം ദിവ സത്തിലേക്ക് കടന്നു കന്യാസ്ത്രീയെ പീഡിപ്പിച്ച സംഭവത്തിൽ വത്തിക്കാൻ ഇട പെട്ടേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ഫ്രാങ്കോ മുളയ്ക്കലിനോട് ബിഷപ്പിന്റെ ചുമതലയിൽ നിന്നും മാറിനിൽക്കാൻ വത്തിക്കാൻ രണ്ടുദിവസത്തിനകം ആവശ്യപ്പെട്ടേക്കും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാകുന്നതുവരെയായിരിക്കും മുളയ്ക്കലിനെ പൌരോഹിത്യ ചുമതലയിൽ നിന്നും ഒഴിവാക്കുക കന്യാസ്ത്രീയെ പീഡിപ്പിച്ചതുസംബന്ധിച്ച കേസിലെ വിശദാംശങ്ങൾ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതി അധ്യ ക്ഷൻ കർദ്ദിനാൾ ഓസ്വോൾഡ് ഗ്രേഷ്യസ് വത്തിക്കാനെ നേരിട്ട് അറിയിച്ചിരുന്നു

കേരളത്തിലെ സഭാനേതൃത്വത്തിൽ നിന്ന് വത്തിക്കാൻ സംഭവത്തിന്റെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്

ഇതിനുപിന്നിൽ ജലന്ധർ ബിഷപ്പിന്റെ കൈകളുണ്ടെന്നും സമ രസമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീക്ക് നീതിലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും നേ താക്കൾ അറിയിച്ചു പ്രളയദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീ ഷനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട്പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ഹൈക്കോടതി ബുധനാഴ്ച പരിഗ ണിക്കും കനത്ത മഴ പെയ്തപ്പോൾ ഡാമുകളിൽ ജലനിരപ്പ് സുര ക്ഷിതമായി നിലനിർത്തുന്നതിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടാ യെന്നും ഇതേക്കുറിച്ച് വിശദമായ പഠനവും പരിശോധനയും അനിവാര്യമാണെന്നും ഹർജിയിൽ പറയുന്നു ഇതിനായി ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ഉൾപ്പെടെ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചില്ലെങ്കിൽ തെറ്റ് ആവർത്തിക്കാൻ ഇടയുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു കാലാവസ്ഥാമുന്നറിയിപ്പ് കണക്കിലെടുക്കാതെ അവസാന നിമിഷം ഡാം തുറന്നുവിട്ടതാണ് പ്രളയം ഇത്രയും രൂക്ഷമാകാൻ കാരണമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആരോപി ച്ചു ഈ ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്നും പ്രകൃതി ദുരന്തമ ല്ലെന്നും അദ്ദേഹം പറഞ്ഞു

പ്രളയദുരന്തം നേരിട്ടവർക്ക് പിരിവ് ദുരന്തവും നേരിടേണ്ട അവ സ്ഥയാണെന്ന് കെ

സി പ്രസിഡണ്ട് എം എം ഹസ്സൻ പറ ഞ്ഞു ഗവൺമെന്റ് നടത്തുന്നത് ഗുണ്ടാപിരിവാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി സന്മനസ്സുള്ളവർ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് തരട്ടെ എന്ന രീതിയിൽ ഗവൺമെന്റ് ഉത്തരവ് മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സാലറി ചാലഞ്ചിൽ പങ്കെടുക്കാത്തവർക്ക് പണി ഷ്മെന്റ് ട്രാൻസ്ഫർ നൽകുകയാണെന്നും ഹസ്സൻ ആരോപിച്ചു ചാരക്കേസിൽ കരുണാകരനെതിരായ ഗൂഢാലോചന സംബന്ധിച്ച വിശദാംശങ്ങൾ പത്മജയോട് തന്നെ ചോദിക്കണമെന്നും ഹസ്സൻ പറഞ്ഞു മുഖ്യമന്ത്രി വിദേശത്തേയ്ക്ക് പോയശേഷം സംസ്ഥാനത്തെ പ്രളയദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ അവതാളത്തിലായതായി വി

സതീശൻ എം

എ കുറ്റപ്പെടുത്തി ദുരിതാശ്ചാസപ്ര വർത്തനം മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഭരണസ്തം ഭനമാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു തീരുമാ നങ്ങളെടുക്കാൻപോലും മന്ത്രിമാർക്ക് കഴിയുന്നില്ല നഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടപടികൾപോലും ഇതുവരെ പൂർത്തിയായിട്ടി ല്ലെന്നും സതീശൻ പറഞ്ഞു പ്രളയക്കെടുതിയെ തുടർന്ന് വിവിധ രേഖകൾ നഷ്ടപ്പെട്ട വർക്ക് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ പുതുക്കിയ രേഖകൾ നൽകു മ്പോൾ ഒരു വിധത്തിലുള്ള ഫീസും ഈടാക്കാൻ പാടില്ലെന്ന് ദുര ന്തനിവാരണ വകുപ്പ് ഉത്തരവിട്ടു

ചൊവ്വാഴ്ച ആരം ഭിച്ച അഞ്ചുദിവസത്തെ ധനസമാഹരണ യജ്ഞത്തിന് വൻ പ്രതി കരണമാണ് ലഭിച്ചത് കോടിക്കണക്കിന് രൂപയും സ്വർണവും ഭൂമിയും സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും സംഭാവന നൽകി ആലപ്പുഴജില്ലയിൽ ഇന്നലെ ആരംഭിച്ച ധനസമാഹരണം ചൊവ്വാഴ്ച സമാപിക്കും

നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് ജില്ലയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കൊയിലാണ്ടിയിൽ പറഞ്ഞു ഗോവ മുഖ്യമന്ത്രിയും മുൻ രാജ്യരക്ഷാമന്ത്രിയുമായ മനോഹർ പരീക്കറെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഡൽഹി എയിംസിലേക്ക് കൊണ്ടുപോയി പനാജിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴി ഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടു പോയത്

സംസ്ഥാനത്തെ സ്ഥിതി വിലയിരുത്താൻ നിരീക്ഷകരെ അയക്കുമെന്ന് ബി ജെ പി കേന്ദ്രനേതൃത്വം അറിയി ച്ചും ജമ്മു കശ്മീരിലെ കുൽഗാമിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ച് ഭീകരരെ വധിച്ചു

ചൌഗാമിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സൈന്യം നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടാ യത് ഇന്ധനവില ഇന്നും വർധിച്ചു

ധാക്കയിൽ സാഫ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് കലാശ പ്പോരാട്ടത്തിനിറങ്ങും മാലദ്വീപാണ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി

പ്രാഥമിക റൌണ്ടിൽ ഇന്ത്യ മാലദ്വീ പിനെ തോൽപ്പിച്ചിരുന്നു ധാക്ക ബംഗബന്ധു സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് ആറരയ്ക്കാണ് മത്സരം ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം

ഏകദിന ഫോർമാറ്റിലാണ് ഇക്കുറി മത്സരം സംഘടിപ്പിക്കുന്നത്

ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യൻമാരായ ഇന്ത്യയുടെ ആദ്യ മത്സരം ചൊവ്വാഴ്ച ഹോങ്കോങ്ങിനോടാണ് ബുധനാഴ്ച ഇന്ത്യ പാകി സ്ഥാനെ നേരിടും കോഴിക്കോട് ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് മെഡിക്കൽ കോളജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ തുടക്ക മായി

നാളെ സമാപിക്കും കോഴിക്കോട് ജില്ലാസബ്ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നാളെ താമരശ്ശേരി എളേറ്റിൽ എം

ദക്ഷിണകൊറിയയിലെ ചാങ്വോണിൽ ലോക ഷൂട്ടിങ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് മൂന്നാം സ്ഥാനം

അവസാന ദിവസമായ ഇന്നലെ ജൂനിയർ വിഭാ ഗത്തിൽ വിജയ്വീർ സിധു സ്വർണം നേടി സംസ്ഥാന വെയ്റ്റ്ലിഫ്റ്റിങ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ മുണ്ട യാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു

വയനാട് ബാണാസുരസാഗർ അണക്കെട്ടിനോട് ചേർന്ന സ്വകാര്യ ഭൂമികളിൽ നിർമ്മാണപ്രവർത്തനങ്ങൾക്ക് അധികൃതർ നിരോധനം ഏർപ്പെടുത്തി ഡാമിന്റെ നിലനിൽപ്പിന് പോലും ഭീഷ ണിയായ ഉരുൾപൊട്ടൽ മറച്ചുവെച്ച് വിവാദമായ സമീപത്തെ റിസോർട്ടും ഭൂമിയും സന്ദർശിച്ചശേഷം സബ്കലക്ടർ എൻ

കെ ഉമേഷ് ആണ് നിർമ്മാണപ്രവർത്തനങ്ങൾ സ്റ്റേചെയ്തത് പ്രളയ ദുരിതം വിലയിരുത്താൻ മലപ്പുറം ജില്ലയിലെത്തിയ ലോകബാങ്ക് എ ഡി

നിലമ്പൂർ മുതൽ പൊന്നാനി വരെ ദുരിതബാധിത പ്രദേശങ്ങളിലാണ് സംഘം ഇന്ന് സന്ദർശിക്കുന്നത്

ഡി ബി സംഘത്തിന് ജില്ലാകലക്ടർ അമിത് മീണ യാണ് നഷ്ടം സംബന്ധിച്ച പ്രാഥമിക കണക്ക് നൽകിയത് വീടു കൾക്കാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്